അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മൂന്നാം ഘട്ട ചർച്ചകൾ ലഡാക്കിൽ പുരോഗമിക്കുന്നു

രാജ്യത്ത് അൺലോക്ക് രണ്ടാം ഷ്ട്രിട്ട്ം മാർഗ്ഗനിർദ്ദേശങ്ങൾ നിലവിൽ വന്നു

രാജ്യത്ത് കോവിഡ് മൂക്ക്കി നിരക്കിൽ വർദ്ധന

രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ ഡോക്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചു

ഇന്ത്യൻ ഭാഗത്തെ മോൾഡോ ചുസൂൾ അതിർത്തി പോസ്റ്റിലാണ് ചർച്ച നടക്കുന്നത് ഗാൽവാൻ സംഭവത്തിന് ശേഷം രണ്ടാം തവണയാണ് കമാൻഡർ തല കൂടിക്കാഴ്ച നടക്കുന്നത് ഇന്ത്യൻ ഭാഗത്തു നിന്ന് ലഫ്റ്റനന്റ് ജനറൽ ഹരിന്ദർ സിംഗും ചൈനയുടെ ദക്ഷിണ സിൻജിയാങ് ഉൾപ്പിനിക ഡിവിഷൻ മേജർ ജനറൽ ലിൻ ലുയി യുമാണ് ചർച്ചിക്ൾക്ക് നേതൃത്വം നൽകുന്നത്

കൃത്യസമയത്ത് ലോക്ക് ഡൌൺ പ്രഖ്യാപിച്ചത് ലക്ഷങ്ങളെ കോവിഡിൽ നിന്നും രക്ഷിക്കാനായെന്ന് ഇന്നലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു

അതിതീവ്ര രോഗബാധിത പ്രദേശങ്ങളിൽ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നതിനുള്ള പ്രക്രിയയുടെ തുടർച്ചയാണിത്

സാമൂഹിക രാഷ്ട്രീയ കായിക ഒത്തുചേരലുകളും അനു്വദിക്കില്ല

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പാലിച്ചാണ് സർവ്വീസുകൾ നടത്തുക

ഗഞ്ചാം ഗജപതി ഖുദ്ര കട്ടക് ജജ്പൂർ ജഗത് സിംഗ്പൂർ ബാലസോർ മയൂർഭഞ്ജ് ക്യോഞ്ച്ഹർ ജാർസു ഗുഡ എന്നീ ജില്ലകളിലാണ് ലോക്ക്ഡൌൺ

സംസ്ഥാനത്ത് അതീവ ജാഗ്രത തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താ വിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

വൈദ്യശാസ്ത്ര രംഗത്ത് മികച്ച സേവനങ്ങൾ നൽകി ചരിത്രം കുറിച്ച ഡോ

റോയിയുടെ ജന്മദിനമാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് രാജ്യത്തെ കൊറോണ പ്രതിരോധത്തിനായി അഹോരാത്രം പോരാടുന്ന ഡോക്ടർമാർക്ക് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു

ക്ട്പ്പിഡുമായി ബന്ധപ്പെട്ട നൂതന കണ്ടുപിടിത്തത്തിലും ജനക്ടീയ്വിഭാഗത്തിലുമാണ് പുരസ്കാരം

വോക്കൽ ഫോർ ലോക്കൽ എന്ന പ്രധാനമന്ത്രിയുടെ ആഹാനം സ്വീകരിച്ച് ചൈനീസ് ആപ്പുകൾക്ക് പകരമുള്ള ഇന്ത്യൻ ആപ്പുകളുടെ ഉപയോഗം വർദ്ധിച്ചു തുടങ്ങി

ഹുവായ് ടെക്നോളജീസിനേയും ദാള കോർപ്പറേഷനേയുമാണ് അമേരിക്കയിലെ ഫെഡറേഷൻ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ എഫ്

സി നിരോധിച്ചത്

വിലക്കയറ്റം സംബന്ധിച്ച രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ റിസർവ്വ് ബദങ്ക് നടത്തുന്ന സർവ്വേയ്ക്ക് പുറമേ ആണിത്

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആൾക്കാരെ നേരിൽ കണ്ടും അഭിപ്രായം ശേഖരിക്കുന്ന രീതിയ്ക്ക് പകരം ടെലിഫോണിലൂടെയാണ് സർപ്പേ നടത്തുന്നത് നാണയപ്പെരുപ്പത്തിന് പുറമെ വിലക്കയറ്റം സംബന്ധിച്ചും ജനങ്ങളിലെ അഭിപ്രായം ആരായും മുംബൈ നാഗ്പൂർ അഹമ്മദാബാദ് ബംഗളൂരു ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡിഗഢ് ചെന്നൈ ഡൽഹി ഗുവാഹട്ടി ഹൈദരാബാദ് ജയ്പൂർ കൊൽക്കത്ത ലക്നൌ പാറ്റ്ന റായ്പൂർ റാഞ്ചി തിരുവനന്തപുരം എന്നീ നഗരങ്ങളിലാണ് സർവ്വേ നടത്തുക ന്യൂസ് ഡെസ്ക് ആകാശവാണി

രജിസ്റ്റർ ചെയ്യുന്നതിന്റ് ര്േഖകളോ തെളിവുകളോ അപ്ലോഡ് ചെയ്യേണ്ടതില്ല

എസ് ജലാശ്വ തമിഴ്നാട്ടിലെത്തിച്ചു

കഴിഞ്ഞ വൃാഴാഴ്ച വൈകിട്ടാണ് ഇറാക്കിലെ ബന്ദർ തുറമുഖത്ത് നിന്നും കപ്പൽ പുറപ്പെട്ടത്

എഫ് സംഘത്തിനു നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ സി

ആക്രമണത്തിൽ മറ്റ് മൂന്ന് സി

സോപോർ പട്ടണത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം